അണക്കെട്ടുകൾ തുറന്നതല്ല് കേരളത്തിലെ പ്രളയത്തിന് കാര ണമായതെന്ന് കേന്ദ്ര ജല കമ്മീഷൻ

കേരളത്തെ പുനർ നിർമ്മിക്കാൻ കേന്ദ്രം പുതിയ പാക്കേജ് പ്രഖ്യാപിക്കണം അത് കേരളത്തിന്റെ അവകാശമാണ് കേരളത്തിന് അർഹമായ സഹായം കേന്ദ്രം നൽകാത്തിൽ നിരാശയുണ്ടെന്നും അദ്ദേഹം കൊച്ചിയിൽ വൃക്തമാക്കി ഉപാധികളില്ലാതെ വിദേശസഹായം സ്വീകരിക്കുന്നതിൽ തെറ്റില്ലെന്നാണ് തന്റെ നിലപാട് കേരളാ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സഹായധനം വേഗ്ത്തിൽ വിതരണം ചെയ്യണമെന്നും വിഷയത്തിൽ രാഷ്ട്രീയം കല്ലർത്താൻ ആഗ്ര ഹിക്കുന്നില്ലെന്നും രാഹുൽ പറഞ്ഞു പ്രളയബാധിത പ്രദേശങ്ങൾ നേരിൽ കാണാൻ കേരളത്തിലെ ത്തിയ രാഹുൽഗാന്ധിയ്ക്ക് വയനാട്ടിൽ സന്ദർശനം നടത്തായി ല്ല മോശം കാലാവസ്ഥയെ തുടർന്ന് വയനാട് സന്ദർശനം റദ്ദാ ക്കുകയായിരുന്നു ഇടുക്കി മേഖലയിലാണ് ഇന്ന് രാഹുലിന്റെ സന്ദർശനം കാലവർഷക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ നാശ നഷ്ടങ്ങൾ ചർച്ച ചെയ്യാൻ നിയമസഭയുടെ പ്രത്യേക സമ്മേളനം നാളെ ചേരും

കാലവർഷ ക്കെടുതി മൂലമുണ്ടായ ഗുരുതര സ്ഥിതി വിശേഷങ്ങളും പുനർ നിർമ്മാണത്തിനായി സ്വീകരിക്കേണ്ട നടപടികളും സമ്മേളനം ചർച്ച ചെയ്യും തുടർന്ന് സഭയുടെ അംഗീകാരത്തിനായി പ്രമേയം അവതരിപ്പിക്കും പ്രളയ ദുരന്തത്തിൽ സംസ്ഥാനത്തുണ്ടായ നാശനഷ്ടം വില യിരുത്താനെത്തിയ ലോകബാങ്ക് എ ഡി ബി സംഘവുമായി തിരു വനന്തപുരത്ത് ചീഫ് സെക്രട്ടറി ടോം ജോസിന്റെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുന്നു ഉദ്യോഗസ്ഥതല ചർച്ചയാണ് നടക്കുന്ന തെന്ന് മന്ത്രി തോമസ് ഐസക് വൃക്തമാക്കിയിട്ടുണ്ട് നൂറ്റാണ്ടിലൊരിക്കൽ സംഭവിക്കുന്ന അപ്രതീക്ഷവും അതിശ ക്തവുമായ മഴയാണ് കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് കാരണമായതെന്ന് കേന്ദ്രജല കമ്മീഷനില്പ്പ്പെട്ടപ്പളയമുന്നറിയിപ്പ് വിഭാഗം മേധാവി സുഭാഷ് ചന്ദ്ര പറഞ്ഞു അണക്കെട്ടുകൾ ഒറ്റയ ടിക്ക് തുറന്നതല്ല പ്രളയകാരണം ഭൂപ്രകൃതിയുടെ പ്രത്യേകതമൂലം അണക്കെട്ടുകൾ അതിവേഗം നിറഞ്ഞെന്നും അദ്ദേഹം സ്ഥകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വിലയിരുത്തി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ പ്രവർത്തനം ഇന്ന് ഉച്ചതിരിഞ്ഞ് പുനരാരംഭിക്കും

കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരത്തോളം തൊഴിലാളികൾ ഒരേസമയം പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് വിമാനത്താവളം വേഗത്തിൽ പ്രവർത്തന സജ്ജമാക്കാനായത്

ലോകബാങ്ക് വായ്പ പാടില്ലെന്ന് സിപിഐഎം പറഞ്ഞിട്ടി ല്ലെന്ന് മന്ത്രി ഡോ

നിബന്ധനകൾ അടിച്ചേൽപ്പിച്ച് വായ്പ നല്കരുതെന്ന് മാത്രമാണ് പാർട്ടി അഭി പ്രായപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു വിദേശ ഏജൻസികൾ ഇട നിലക്കാരാവില്ലെന്നും ഓഡിറ്റിംഗ് അധികാരം കൺട്രോളർ ആന്റ് ഓഡിറ്റർ ജനറലിന് ആയിരിക്കുമെന്നും മന്ത്രി സ്വകാര്യ ചാന ലിനോട് പറഞ്ഞു

ഈ സ്കൂളുകൾ ഫിറ്റ്നസ് ഉറപ്പാക്കി തിങ്കളാഴ്ച തുറക്കാനാകുമെന്നാണ് കരുതുന്നതെന്ന് അദ്ദേഹം വാർത്താചാനലിനോട് പറഞ്ഞു

പ്രളയം ്രനേരിട്ട് കുട്ടികൾക്ക് കൌൺസി ലംഗ് നല്കുന്നതിന് മുൻഗണന നൽകുമെന്ന് മന്ത്രി പറഞ്ഞു

മുട്ടിനകം ചെറിയ കടമക്കുടി എന്നിവിടങ്ങളിൽ സേന ദുരിതാശ്ചാസ പ്രവർത്തനം നടത്തുമെന്നും സുനിൽ ലാംബ വ്യക്തമാക്കി പ്രളയദുരന്തത്തിൽപ്പെട്ടവർക്കായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാ സനിധിയിലേക്ക് കുടുംബശ്രീയുടെ സംഭാവനയായി അഞ്ചു കോടിയിലേറെ രൂപ കൈമാറും ഹരിതകേരളം മിഷനിലെ ജീവനക്കാർ ഒരു മാസത്തെ ശമ്പളം മുഖ്യമന്ത്രിയുടെ ദുരിതാശാസ നിധിയിലേക്ക് നൽകാൻ തീരുമാ നിച്ചു

മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന മാനിച്ചാണ് ഒരു മാസത്തെ ശമ്പ ളം സംഭാവന നൽകാൻ തീരുമാനിച്ചത് രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായ മത്സ്യത്തൊഴിലാളി കളെ ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറി യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ആദരിക്കും

രക്ഷാപ്രവർത്തനത്തിൽ പങ്കെ ടുത്ത മത്സൃത്തൊഴിലാളികൾക്ക് പ്രശ്സ്തിപത്രം മുഖൃമന്ത്രി സമ്മാനിക്കും

മെഴ്സിക്കുട്ടിയമ്മ തിരു വനന്തപുരത്ത് അറിയിച്ചു

ജില്ലയിലെ പ്രളയബാധിത മേഖലകളിലെ സ്കൂളുകൾ ഇന്ന് ശുചീകരിക്കും ചെങ്ങന്നൂർ ഉൾപ്പടെ പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തിയ കൊല്ലം ജില്ലയിലെ മത്സ്യത്തൊഴിലാളികൾക്കുവേണ്ടി ആരോഗ്യ വകുപ്പ് മെഡിക്കൽ കൃാമ്പ് സംഘടിപ്പിച്ചു ആലപ്പാട് പ്രാഥമികാരോഗൃ കേന്ദ്രത്തിൽ നടന്ന ക്യാമ്പിൽ തൊഴിലാളികളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു പത്തനംതിട്ട ജില്ലയിലെ പ്രളയ ദുരിതാശ്ചാസ കൃാമ്പുകളിൽ നിന്നും കൂടുതൽ ആളുകൾ വീടുകളിക്ക് മടങ്ങി

കൊല്ലം ജില്ലയിൽ മഴക്കെടുതിയെത്തുടർന്ന് ദുരിതാശ്വാസ കൃാമ്പുകളായി പ്രവർത്തിച്ചിരുന്ന സ്കൂളുകളിൽ ശുചീകരണം പൂർത്തിയാക്കി

ഭാഗിക മായി വീട് തകർന്നവർക്ക് രണ്ട് ലക്ഷം രൂപയായിരിക്കും പലിശ രഹിത വായ്പ

വിസയ്ക്ക് അപേക്ഷിച്ചവർ വിദേ ശത്ത് യാത്ര ചെയ്യുന്നവർ തുടങ്ങി അടിയന്തരമായി പാസ്പോർട്ട് ആവശ്യമുള്ളവർ അടുത്തുള്ള പാസ്പോർട്ട് സേവാകേന്ദ്രങ്ങ ളെയോ റീജ്യണൽ പാസ്പോർട്ട് ഓഫീസിനെയോ സമീപിക്കണം ഇന്ന് ദേശീയ കായികദിനം ഹോക്കി ഇതിഹാസം ധ്യാൻ ചന്ദ് സിംഗിന്റെ ജന്മദിനമാണ് ദേശീയ കായികദിനമായി ആചരിക്കുന്നത്

രാജ്യത്ത് സ്പോർട്സിലും ഗെയിംസിലും ആജീവനാന്തനേട്ടത്തിന് നൽകുന്ന പരമോന്നത ബഹുമതി ധ്യാൻ ചന്ദിന്റെ പേരിലാണ് ദേശീയ കായികദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ കായിക താരങ്ങൾക്ക് അഭിവാദൃം അർപ്പിച്ചു മേജർ ധ്യാൻ ചന്ദിന് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ശ്രദ്ധാജ്ഞലി അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി സന്ദേശത്തിൽ പറഞ്ഞു ആരോ ഗ്യകരമായ ് ഇന്ത്യക്കുവേണ്ടി സ്പോർട്സിനും കായിക ക്ഷമത യുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും ജനങ്ങൾ മുൻഗണന നൽകണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ജക്കാർത്ത ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും ഉൾപ്പെടെ കായിക മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ച വെച്ച കായിക താരങ്ങൾക്ക് അഭിവാദ്യം അർപ്പിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു ഹോക്കി കളിയിലെ മാന്ത്രികനായി അറിയപ്പെടുന്ന ധ്യാൻ ചന്ദിന്റെ കാലഘട്ടം ഹോക്കി ഇന്ത്യയുടെ സുവർണ്ണ കാലമായാണ് അറിയപ്പെടുന്നത്

വനിതാ വിഭാഗത്തിൽ നിലവിലെ വെള്ളി മെഡൽ ജേതാവായ ഖുശ്ബീർ കൌറിന് നാലാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു

രാജപുരം സെന്റ് പയസ് ടെൻത് കോളജ് ഫ്ളഡ്ലിറ്റ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം ലീഗ് മത്സരങ്ങൾ ഇന്നലെ രാത്രിയോടെ പൂർത്തിയായി കാർട്ടർ ഫൈനൽ സെമി ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും

ഭീകരപ്രവർത്തകർ ഒളിച്ചിരിക്കുന്നുണ്ടെന്ന വിവരത്തെ തുടർന്ന് തിരച്ചിലിന് എത്തിയ സൈന്യത്തിനു നേരെ സംഘം ആക്രമണം നടത്തുകയായിരുന്നു നിരവധി പൊലീസുകാരെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അൽതാഫ് കച്ച്റുവാണ് മരി ച്ചവരിൽ ഒരാൾ മറ്റൊരാളെ തിരിച്ചറിഞ്ഞിട്ടില്ല

ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര നേതൃത്വം നൽകുന്ന അഞ്ചംഗ ബെഞ്ചായിരിക്കും കേസ് പരിഗണിക്കുന്നത്